രാജ്യങ്ങളിൽ നിന്ന് രണ്ട് വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിൽ എത്തും

പരിശോധിച്ചതായി ഐ

സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു

രോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുന്ന യാത്രക്കാരെ ഉടൻ തന്നെ ആംബുലൻസുകളിൽ അതതു ജില്ലകളിലെ കാറന്റൈൻ കേന്ദ്രത്തിലേക്കായിരിക്കും മാറ്റുക

നാവികസേന കേന്ദ്രങ്ങൾ അറിയിച്ചു

പുതിയ നിർദ്ദേശ പ്രകാരം വളരെ ചെറിയ രോഗലക്ഷണമുള്ളവരെ കോവിഡ് ടെസ്റ്റ് നടത്താതെ ഡിസ്ചാർജ്ജ് തുടർച്ചയായ ചെയ്യാം കാണിക്കാത്തോ മൂന്ന് ദിവസം തൂട്ട്ർച്ചയ്ായി പനിയില്ലാത്തതോ ആയ രോഗികളെയും ഡിസ്ചാർജ്ജ് പ്പെയ്യാം തുടർന്ന് ഏഴ് ദിവസം ഇവർ വീട്ടിൽ ഐസൊലേഷനിൽ കഴിയണം

രോഗലക്ഷണം വിധേയമാക്കണമെന്നും ആര്യോഗ്യമന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു്

തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം ആറായിരത്തിലധികമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പല പ്രദേശങ്ങളിലും പുതിയ ്ക്രിസ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

സി എം ആർ അംഗീകാരം നൽകിയ സർക്കാർ സ്വാകര്യ ലാബുകളിലാണ് പരിശോധനകൾ നടന്നത്

കൂടുതൽ ലാബുകൾക്ക് അംഗീകാരം നൽകുമെന്നും ഐ സി എം ആർ

സംസ്ഥാനം അനുമതി നൽകാത്തതിനാൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ കണക്കിലെടുക്കണമെന്ന് ശ്രീ അമിത് ഷാർആവശ്യപ്പെട്ടു

തൊഴിലാളി സംഘടനകളുമായി ഇന്നലെ നടത്തിയ വെബ്ബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തുടങ്ങിയവ ലളിതമാക്കുകയും ഹെൽപ്പ് ലൈൻ ആരംഭിക്കുകയും ചെയ്തതായും അദ്ദേഹം അറിയിച്ചു

വിശ്ദാംശങ്ങളുമായി ലിൻസ

ബ്രസീലിലും റഷ്യയിലും രോഗബാധിതരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുകയാണ്

മെക്സികോയിലും മരണസംഖൃ ഉയരുകയാണ് ടാൻസാനിയ്യ ബുർക്കിന ഫാസോ അംഗോള ദക്ഷിണ സുഡാൻ തുടങ്ങിയു ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം വേഗത്തിലായി

എ